സ്ത്രീകളുടെ അവകാശങ്ങൾ തുല്യത പങ്കാളിത്തം എന്നിവ ഓർക്കാനും ഓർമ്മപ്പെടുത്താനുമാണ് ഇന്നത്തെ ദിനാചരണം തുല്യതയ്ക്കായി ഒന്നിച്ചു നിൽക്കാം എന്നതാണ് ഈ വർഷത്തെ വനിതാദിന സന്ദേശം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാവിലെ രാഷ്ട്രപതി ഭവനിൽ നാരീശക്തി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും നല്ലൊരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ സ്ത്രീകളുടെ പങ്ക് തിരിച്ചറിയാനും അവരെ അംഗീകരിക്കാനും വേണ്ടിയാണ് ദിനാചരണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാരീശക്തി പുരസ്കാര ജേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും വനിതാദിനാചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ അക്കൌണ്ടുകൾ ഇന്ന് വനിതകളായിരിക്കും കൈകാര്യം ചെയ്യുന്നത്

സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ രൂപീകരണത്തിന് രണ്ട് വർഷം പൂർത്തിയാകുന്ന ദിവസം കൂടിയാണ് ഇന്ന് വനിതാദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു സ്ത്രീകളെ പൂജിക്കുന്നിടത്ത് ദേവത കളിയാടുന്നു എന്ന സൂക്തം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അവരെ നിന്ദിക്കാനും ചവിട്ടിതേയ്ക്കായും ശ്രമം നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്കു നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ തടയാൻ സ്കൂളുകളിൽ കൌൺസിലിംഗ് സൌകര്യങ്ങൾ ഒരുക്കും വനിതാരത്ന പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു ദേദ വനിതാദിനത്തിൽ വേണാട് എക്സ്പ്രസിന്റെ നിയന്ത്രണം വനിതകൾ ഏറ്റെടുക്കും

ലോക്കോ പൈലറ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നിവരടക്കം ജീവനക്കാരെല്ലാം സ്ത്രീകളായിരിക്കും

ദേദ വനിതാ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തലസ്ഥാനത്ത് സ്ത്രീകളുടെ രാത്രിനടത്തം സംഘടിപ്പിച്ചു

കനകക്കുന്നിൽ നിന്നാരംഭിച്ച നടത്തം കിഴക്കെകോട്ടയിലെ ഗാന്ധിപാർക്കിലാണ് അവസാനിച്ചത് സ്ത്രീകൾക്കും രാത്രി പൊതുഇടങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയും എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു

കോഴിക്കോട് നഗരത്തിലെ പൊലീസ് സ്റ്റേഷനുകൾ ഇന്ന് വനിതാ ഓഫീസർമാരായിരിക്കും നിയന്ത്രിക്കുന്നത് സിറ്റി കൺട്രോൾ റൂമിന്റെ ചുമതലയും വനിതകൾക്കാണ് കണ്ണൂരിൽ ദിനാചരണത്തിന്റെ ഭാഗമായി വിളംബര ജാഥയും കലക്ട്രേറ്റ് ജീവനക്കാരുടെ സുംബ ഡാൻസ് എസ് എൻ കോളജ് വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബ് എന്നിവ നടത്തി സ്ത്രീകളുടെ രാത്രി ഷോപ്പിംഗും രാത്രി നടത്തവും സംഘടിപ്പിച്ചിരുന്നു കണ്ണൂർ ജില്ലയിലെ വനിതാ സംരംഭകർ മന്ത്രി ഇ പി ജയരാജനെ സന്ദർശിക്കും രാവിലെ പാപ്പിനിശ്ശേരിയിലെ മന്ത്രിയുടെ വീട്ടിലാണ് കൂടിക്കാഴ്ച പൊതുഇടം ഏന്റേതും എന്ന പേരിൽ കഴിഞ്ഞ വർഷം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച രാത്രിനടത്തത്തിൽ മികച്ച നഗരസഭയ്ക്ക് നൽകുന്ന പുരസ്കാരത്തിന് കൊടുങ്ങല്ലൂർ അർഹമായി പാലക്കാട് തസ്രാക്കിൽ കേരള സാഹിത്യ അക്കാദമി പെൺമ എന്ന സ്ത്രീ കൂട്ടായ്മ സംഘടിപ്പിക്കും ദേദ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ വനിതാശിശു വികസനസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി വിളംബര റാലിയും നടന്നു ദേദ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കും രുമ സ്ത്രീകൾ അധികം കടന്നുവരാത്ത ചലച്ചിത്ര സംവിധാന മേഖലയിലേക്ക് ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഒരു വനിതയുടെ രംഗപ്രവേശം അതാണ് വയനാട് നടവയൽ സ്വദേശി ലീലാ സന്തോഷിന്റെ പ്രത്യേകത കരിന്തണ്ടൻ എന്ന സിനിമയുടെ തയ്യാറെടുപ്പിലാണ് ലീലയിപ്പോൾ

ഉച്ചയ്ക്ക് രണ്ടിന് ശ്രീകോവിൽ തുറക്കും ദർശനത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേദ ചവറ എം എൽ എ എൻ

ദരദ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം ചവറയിൽ വിജയിച്ചത് കലാലയ രാഷ്ട്രീയത്തിലൂടെ ഇടതുപക്ഷ വിദ്യാർത്ഥി നേതാവായാണ് അദ്ദേഹം പൊതു പ്രവർത്തനം ആരംഭിച്ചത്

അടുത്തിടെ അദ്ദേഹം സി പി ഐ എമ്മിൽ ചേർന്നിരുന്നു ദേദ രാജ്യത്തെ മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങന്നുവരുടെ സേവനം രാജ്യവളർച്ചയ്ക്ക് ഉപയോഗിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാൻ പറഞ്ഞു സാങ്കേതിക വിദ്യ വളരുമ്പോൾ ജോലി നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടിവരികയാണ്

കോഴിക്കോട്ട് ഇൻസ്റ്റിറ്റിയൂഷൻ ഓഫ് എൻജിനിയേഴ്സ് ഇന്ത്യ പ്രാദേശിക കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ദേദ കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗബാധിത പ്രദേശത്തെ മുഴുവൻ വളർത്തുപക്ഷികളെയും കൊന്നൊടുക്കി മറവുചെയ്യുന്ന ജോലികൾ ഇന്നാരംഭിക്കും വേങ്ങേരിയിലും വെസ്റ്റ് കൊടിയത്തൂരിലും രോഗബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച സ്ഥലത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം രോഗനിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്

ദേദ പക്ഷിപ്പനി ബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വിവിധ വകുപ്പുകൾ ഏകോപന പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ നടപ്പാക്കണമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർദ്ദേശിച്ചു രോഗനിയന്ത്രണത്തിന് നടപടിയെടുത്തിട്ടുണ്ടെന്നും ആശങ്ക വേണ്ടെന്നും അദ്ദേഹം പേരാമ്പ്രയിൽ പറഞ്ഞു

നിപ വൈറസ് ബാധയുണ്ടായ പ്രദേശമായിരുന്നു കോഴിക്കോട് എന്നും കൂട്ടായ പരിശ്രമത്തിലൂടെ അതിനെ അതിജീവിക്കാൻ ജില്ലയ്ക്കായെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവതാളം പദ്ധതി പ്രകാശനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

ആദ്യമായാണ് ഇന്ത്യ ഫൈനലിൽ എത്തുന്നത്

നിശ്ചിതസമയത്തും അധികസമയത്തും ഇരുടീമുകളും മൂന്ന് വീതം ഗോൾ അടിച്ച് സമനിലയിൽ എത്തിയതിനെ തുടർന്നാണ് സഡൻ ഡെത്ത് വേണ്ടിവന്നത്

ഇന്നലെ മഡ്ഗാവിൽ എഫ് സി ഗോവയെ രണ്ടിനെതിരെ നാല് ഗോളിന് തോൽപ്പിച്ചാണ് അവർ ഫൈനലിസ്റ്റുകളായത് ഇന്ന് എ ടി കെ ബെങ്കളൂരു എഫ് സി മത്സരത്തിന്റെ ജേതാക്കളായിരിക്കും ഫൈനലിൽ ചെന്നൈയുടെ എതിരാളികൾ ദേദ എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും സ്പോർട്സ് എന്ന ലക്ഷ്യത്തോടെ റൺ ഫോർ യൂണിറ്റി മിനിമാരത്തൺ പുലർച്ചെ കോഴിക്കോട്ട് ആരംഭിച്ചു

വിവിധ വിഭാഗങ്ങളിലെ മാരത്തൺ ജേതാക്കൾക്ക് സമാപന ചടങ്ങിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ പ്രൈസ് മണി വിതരണം ചെയ്യും

പാലക്കാട്ട് ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ പദ്ധതി രേഖയും കർമ്മപദ്ധതിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഷൊർണ്ണൂർ പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിലെ നവീകരണം പൂർത്തിയാക്കിയ റോഡുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേദ പൊലീസ് വകുപ്പിലെ അഴിമതി സി ബി ഐ അന്വേഷണത്തിന് വിടാൻ മുഖ്യമന്ത്രി ധൈര്യം കാണിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു

പിന്നീട് ഉപകരണങ്ങൾ വാങ്ങാൻ നൽകിയ ടെണ്ടർ പിൻവലിച്ചു ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് കള്ളക്കളിയാണെന്ന് ചെന്നിത്തല ആരോപിച്ചു ദദ അദ്ധ്യാപകനും മാപ്പിളകലാ സാഹിത്യകാരനും ഗ്രന്ഥശാലാ പ്രവർത്തകനുമായിരുന്ന ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് നിര്യാതനായി

ഷാർജ കെ എം സി സി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മാപ്പിള സാഹിത്യ പഠന മേഖലയിൽ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്

രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

ദേദ ഒറ്റപ്പാലം ചെനക്കത്തൂർ പൂരം ഇന്ന് ഇതേതുടർന്ന് പാലക്കാട് ഷൊർണ്ണൂർ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്